നേരിട്ടതായി ലോകസാമ്പത്തിക ഫോറത്തിന്റെ ദാവോസ് സംവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കിഴക്കൻ ലഡാക്കില്പ്രെ സ്ംഭവവികാസങ്ങൾ ഇന്ത്യ ചൈന ന് ബന്ധത്തെ സാരമായി ബ്ാധിച്ചതായി വിദേശകാരൃമന്ത്രി എസ് ജയശങ്കർ

മികച്ച രീതിയിൽ പദ്ധതി പൂർത്തിയാക്കിയതിന് കേന്ദ്രമന്ത്രി സംസ്ഥാനത്തെ അഭിനന്ദിച്ചു

കോവിഡ് വ്യാപനം തടയാനുള്ള നടപടികൾ ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ലോക സാമ്പത്തിക ഫോറത്തിന്റെ ദാവോസ് സംവാദത്തെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

എന്നാൽ പൊതുജന പങ്കാളിത്തത്തിലൂടെയും ആരോഗ്യമേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസത്തിലൂടെയും രാജ്യം കോവിഡിനെ നേരിട്ടു

കുറച്ചുമാസ്ങ്ങൾക്കുള്ളിൽ തന്നെ ദാ കോടി ജനങ്ങൾക്കുകൂടി വാക്സ്വിൻ ഗ്നൽകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു

സി യുടെ പങ്ക് പ്രശംസനീയമാണെന്നും പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ജനങ്ങളെ സഹായിക്കാൻ എൻ

സി മുന്നിലാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ എൻ

കരസേനയിലും വ്യോമസേനയിലും നാവികസേനയിലുമായി ഏതാണ്ട് ഒരു ലക്ഷം എൻ

സി കാഡറ്റുകൾ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു

ഇന്ത്യാചരിത്രത്തിലെ ആദൃ പേപ്പർ രഹിത ബജറ്റായിരിക്കും ഇത്

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് ഘട്ടങ്ങളായാണ് ഇത്തവണ പാർലമെന്റ് സമ്മേളനം നടക്കുന്നത്

ജയശങ്കർ നിയന്ത്രണരേഖയിലുണ്ടായ സംഭവങ്ങൾ സൈനിക വിന്യാസത്തിൽ കുറവ് വരുത്തുന്നതിന് തടസ്സമാവുകയും മേഖലയിലെ ശാന്തിയും സമാധാനവും തകർക്കുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞു

കർഷക സംഘടനാ നേതാക്കൾക്കെതിരെ ഡൽഹി പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള വിവരം

അയോന് വിഷയമാക്കിയുള്ളതായിരുന്നു ഉത്തർപ്രദ്ദേശിന്റെ നിശ്ചലദൃശൃം

എസ്

ബി

ഇ വിദ്യാഭ്യാസം നേടിയ എല്ലാ വിദ്യാർത്ഥികളുടെയും രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു

പദ്ധതി മികച്ച രീതിയിൽ പൂർത്തിയാക്കിയതിന് മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് മന്ത്രിയേയും ശ്രീ നിതിൻ ഗഡ്കരി അഭിനന്ദിച്ചു

സംസ്ഥാനത്തിന്റെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും ജനങ്ങൾക്ക് ആശ്വാസമേകാനും ആലപ്പുഴ ബൈപ്പാസ് ഉപകരിക്കുമെന്ന് ഉദ്ഘാടന വേളയിൽ കേന്ദ്രി നിതിൻ ഗഡ്കരി പ്രതീക്ഷ പങ്കൂവച്ചു

എത്ര വലിയ പദ്ധതിയും കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് മനോഹരമായി ചെയ്യാനാവുമെന്ന് ആലപ്പുഴ ബൈപ്പാസ് തെളിയിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി

കേരളത്തിന്റെ വികസനത്തിന് പുതിയ പാതകൾ വെട്ടി തെളിയിക്കുന്നതാണ് ആലപ്പുഴ ബൈപ്പാസ് എന്ന് ചടങ്ങിൽ പ്രധാന സാന്നിധൃമായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു പൊതുമരാമത്ത് മന്ത്രി ജി

നില്വിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം കേരളം ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു

പോലീസ് നിരീക്ഷണം കൂടുതൽ കർശനമാക്കും

അടഞ്ഞ ഹാളുകളിലെ ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ പങ്കാളിത്തം പരിമിതപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി അഭൃർത്ഥിച്ചു

ഇന്നലെ മൂന്നു ലക്ഷത്തിലേറെ പേർക്ക് വാക്സിൻ നൽകി

രാജ്യത്ത് ഇപ്പോൾ ഒന്നേമുക്കാൽ ലക്ഷത്തോളം പേർ മാത്രമാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്

ഇതുവഴി സംസ്ഥാനം അധിക വായ്പയ്ക്ക് യോഗ്യത നേടിയിട്ടുണ്ട്

ജയല്ളിതയുടെ വസതിയായിരുന്ന ചൈന്നൈ പോയസ് ഗാർഡ്നിലെ വേദ നിലയത്തിൽ ഒരുക്കിയ സ്മാരകത്തിന്റെ ഉദ്ഘാട്ടത്ത് മുഖ്യമന്ത്രി നിർവ്വഹിച്ചു